ചർച്ച ചെയ്യാനായി പ്രധാനമന്ത്രി വിളിച്ചു ചേർത്ത സർവ്വകക്ഷി യോഗം ഇന്ന്

പ്രവർത്തനങ്ങൾ സംബന്ധിച്ച പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി

വെർച്ചൽ യോഗത്തിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് ടിറ്ററിൽ അറിയിച്ചു കിഴക്കൻ ലഡാക്കിലെ ഗൽവാൻ താഴ്വരയിൽ ഇന്ത്യ്ൻ ചൈനീസ് സൈനികർ തമ്മിൽ നടന്ന സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിലാണ് യോഗം

വിശദാംശങ്ങളുമായി നന്ദന വോയ്സ് ഈ മാസം ആറിന് തുഷുൾ മോൾഡൊ മേഖലയിൽ നടന്ന ഇരു രാജ്യങ്ങളുടെയും കമാൻഡർ തല യോഗത്തിൽ നിയന്ത്രണരേഖയിലെ സ്ഥിതിഗതികൾ ശാന്താമാക്കാൻ തീരുമാനിച്ചിരുന്നു ഈ തീരുമാനം നടപ്പിലാക്കുന്നതിനായി കഴിഞ്ഞ ആഴ്ചയിലുടനീളം ഗ്രൌണ്ട് കമാൻഡർമാരുടെ യോഗം നടന്നുവരികയായിരുന്നു സ്ഥിതിഗതികൾ ശാന്തമായി പരിഹരിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇന്ത്യ എന്നാൽ ഗാൽവാൻ താഴ്വരയിലെ നിയന്ത്രണരേഖയുടെ കാര്യത്തിൽ ചൈന പ്രതീക്ഷ തെറ്റിച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് അനുരാഗ് ശ്രീവാത്സവ ഇരുവശത്തും നിരവധി മരണങ്ങൾക്കിടവരുത്തിയ ഈ അക്രമ സംഭവങ്ങൾ ചൈന മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതാണെന്ന് അദ്ദേഹം പറഞ്ഞു

ഇന്ത്യയുടെ എല്ലാ പ്രവർത്തനങ്ങളും നിയന്ത്രണരേഖ മാനിച്ചുകൊണ്ടാണെന്നും അദ്ദേഹം ചൈന തങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് അറിയിച്ചു

ജയശങ്കർ അറിയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ലോക്ഡൌണിന് ശേഷം സ്വദേശങ്ങളിലേക്ക് തിരികെ എത്തിയ കുടിയേറ്റ തൊഴിലാളികൾക്ക് ത്തൊഴിൽ ് ഉറപ്പാക്കുന്നതിനോടൊപ്പം സുസ്ഥിരമായ അടിസ്ഥാന ലക്ഷ്യമിടുന്നു

സാധാരണ ഗതിയിൽ പൊതുസ്ഥലങ്ങളിൽ ജനപങ്കാളിത്തത്തോടെയാണ് ദിനാചരണം നടക്കാറുള്ളത്

അതുകൊണ്ട് തന്നെയാണ് യോഗ വീടുകളിൽ കുടുംബത്തോടൊപ്പം എന്ന ദിനാചരണ പ്രമേയം പ്രസക്തമാകുന്നത് ലോകം ഒരു മഹാമാരിയോട് പോരാടുകയാണ് കോവിഡ് മുന്നോട്ടുവച്ച വെല്ലുവിളികൾ നേരിടാൻ യോഗ നൽകുന്ന ശക്തിക്ക് കഴിയുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ശരീരത്തിന്റെ പ്രതിരോധ സംവിധാനം തിരിച്ചറിയാനും ശാരീരിക മാനസിക ശക്തി വർദ്ധിപ്പിക്കാനും യോഗയിലൂടെ സാധിക്കും കോവിഡ് കാലം കഴിയുമ്പോൾ രോഗപ്രതിരോധത്തിന് നാം മുൻഗണന കൊടുക്കണം യോഗയ്ക്ക് കൂടുതൽ ജനസമ്മതി ലഭിക്കുമെന്നും യുവാക്കൾക്കും മറ്റ് ജനവിഭാഗങ്ങൾക്കിടയിലും യോഗയ്ക്ക് പ്രാധാന്യം ലഭിക്കുന്നത് പ്രതീക്ഷാവഹമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു

ആന്ധ്രപ്രദേശ്കൃ ഗുജറാത്ത് മധ്യപ്രദേശ് രാജസ്ഥാൻ ് ഝാർഖണ്ഡ് മണിപ്പൂർ ട്രമിസോറം മേഘാലയ എന്നിവിടങ്ങളിലാണ് തിരഞ്ഞെടുപ്പ് ദ്വോട്ടെണ്ണൽ വൈകിട്ട് നടക്കും കർണാടകയിലെ നാല് സീറ്റുക്ളില്ലേ്ക്കും മുൻ പ്രധാനമന്ത്രി എച്ച്

ദേവഗൌഡ കോൺഗ്രസ്ക് നേതാവ് മല്ലികാർജുൻ ഖാർഗെ എന്നിവരുൾപ്പെടെ എല്ലാക് സ്ഥാനാർത്ഥികളും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു ആരു്ൺാചൽപ്രദേശിലെ ഏക രാജ്യസഭാ സീറ്റിലേക്കുള്ള തിരുട്ടങ്ങ്ടുപ്പിൽ ബി ജെ പി യുടെ നബാം റബിയയും എതിരില്ലാതെ തീരഞ്ഞെടുക്കപ്പെട്ടു

ഭീകരർ സേനയ്ക്കെതിരെ വെടിയുതിർക്കുകയും തുടർന്ന് നടന്ന ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുകയുമായിരുന്നു

അവശ്യ സർവീസുകളായ പഞ്ചായത്ത് വില്ലേജ് ഓഫീസുകളുടെ പ്രവർത്തനം മുടങ്ങാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണം

നിർദ്ദേശുങ്ങൾ കൃതൃമായി പാലിക്കാത്ത ജീവനക്കാർക്കെതിരെ വ്കുപ്പ് മേലധികാരികൾക്ക് അച്ചടക്ക നടപടി സ്വീകരിക്കാം

നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറി പുറത്തിറക്കിയ ഉത്തരവിലാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പ്രവാസികളെ അതിഥിതൊഴിലാളികളായി കണക്കാക്കാൻ ആവുമോ എന്ന് പരിശോധിക്കാൻ ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനോട് നിർദേശിച്ചിരുന്നു അതേസമയം നോർക്കയുടെ ഉത്തരവ് പിൻവലിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു

ലോക്ഡൌൺ ഈ മാസം അവസാനം വരെ തുടരുമെന്ന് തമിഴ്നാട് സർക്കാർ അറിയിച്ചു

കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ചെന്നൈയിൽ രോഗബാധിതരുടെ എണ്ണം വർദ്ധിക്കുന്നതിനെ തുടർന്നാണ് സമ്പൂർണ്ണ ലോക്ഡൌൺ ഏർപ്പെടുത്താൻ തീരുമാനിച്ചത്

ക്ക്ഴിഞ്ഞ ദിവസം ബീജാപ്പൂരിൽ നിന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത വനിതാ മാവോയിസ്റ്റിനെ കോവിഡ് ലക്ഷണങ്ങളെ തുടർന്ന് പുറത്താക്കിയതായാണ് പോലീസ് കരുതുന്നത്

ബ്രസീലിൽ പത്ത് ലക്ഷത്തിനടുത്ത് രോഗബാധിതരാണുള്ളത്